കേസിൽ ഒരു ശതമാനമെങ്കിലും സാധൃതയുണ്ടെങ്കിൽ മധ്യസ്ഥതയ്ക്ക് സന്നദ്ധമെന്ന് സുപ്രീംകോടതി

ഭീകരാക്രമണത്തിന് പുൽവാമ മറുപടിയായാണ് പ്രത്യാക്രമണമെന്നും വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും വിദേശകാര്യ സെക്രട്ടറി ന്യൂഡൽഹിയിൽ അറിയിച്ചു

ആക്രമണത്തിൽ നിരവധി ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹചാരിയായ മൌലാനാ യൂസഫ് അസറിന്റെ നേതൃത്വത്തിലാണ് ബലാകോട്ട് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് ബോംബാക്രമണത്തിൽ പൌരന്മാർക്ക് അപകടമുണ്ടായിട്ടില്ലെന്ന് ശ്രീ

പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഉള്ള ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളെപ്പറ്റി പാകിസ്ഥാന് വിവരങ്ങൾ നൽകിയിട്ടും അവർ നടപടികളൊന്നും എടുത്തില്ലെന്ന് ശ്രീ ഗോഖലെ കുറ്റപ്പെടുത്തി

രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി സ്റ്റുഷ്മാ സ്വരാജ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ദേശീയ സ്ു്രക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ കാബിനറ്റ് സെക്രട്ടറി വി കെ സിൻഹ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അഭ്യന്തര വകുപ്പ് സെക്രട്ടറി രാജീവ് ഗൌബ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ പി കെ മിശ്ര എന്നിവരും സന്നിഹിതരായിരുന്നു

ദേശീയ അന്വേഷണ ഉദ്യോഗസ്ഥൻമാരും പ്രാദേശിക പോലീസും സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുമായി ചേർന്നാണ് ഒൻപത് സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയത് മിൽവേയ്സ് ഉമർ ഫറൂഖ് സെയ്ദ് അലിഷാ ഗിലാനിയുടെ മകൻ സെയിംഗിലാനി യാസിൻ മാലിക് ഷബിർ ഷാ അഷ്റഫ് സെയ്ദി സഫർ ബൂട്ട് എന്നിവരുടെ വസതികളിലാണ് റെയ്ഡ് നടത്തിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാനിൽ നിന്ന് ഹവാല ഇടപാടിലൂടെ വിഘടനവാദികൾ നിയമവിരുദ്ധമായി സാമ്പത്തിക സഹായ്റ് സ്വീകരിക്കുന്നു എന്ന കേസിലായിരുന്നു അന്വേഷണം

അയോധൃ കേസിൽ വാദം കേൾക്കുന്ന സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്

വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളിലും ഇന്ന് പരമോന്നത കോടതി വാദം കേൾക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹാജരാക്കൽ വാറണ്ട് പുറപ്പെടുവിച്ച സ്പെഷ്യൽ ജഡ്ജ് അരവിന്ദ് കുമാർ കേസിൽ വാദം കേൾക്കുന്നത് മെയ് ഒൻപതിലേക്ക് മാറ്റി

രാജ്യത്ത് തൊഴിലില്ലായ്മിക്കു നിലനിൽക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അദ്ദേഹ്റ ്തള്ളി ഒരു സ്വകാര്യ ടി വി

വിദേശ നിക്ഷേപം ഏറ്റ്പ്പൂർ ഉയർന്ന തോതിൽ നിലനിൽക്കുന്ന വാണിജ്യ വാഹനങ്ങൾ ് ഉയർന്ന നിരക്കിൽ വിറ്റഴിക്കപ്പെടുന്ന റെയിൽ റോഡ് ഭവന നിർമാണം ഭൌതിക സൌകര്യവികസനങ്ങൾ എന്നിവ മികച്ച നിലയിൽ പുരോഗമിക്കുന്ന ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതെങ്ങനെയെന്ന് ശ്രീ മോദി ചോദിച്ചു

ഇതും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന്റെ തെളിവായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ചുരു ജില്ലയിൽ നടക്കുന്ന പൊതു സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും നാലു ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ ടോങ്ക് പട്ടണം പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു

രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടിന്ന്ത്

ഇന്ത്യയിലെമ്പാടുമുള്ള കോടിക്കണക്കിന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയതിനാണ് അക്ഷയപാത്ര ഫൌണ്ടേഷനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ശുചിത്വാവസ്ഥ മെച്ചപ്പെടുത്തിയതും തൊഴിലാളികളുടെ ശുചീകരണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് സുലഭ് ഇന്റർനാഷണലിനെ പുരസ്കാര ജേതാക്കളാക്കിയത്

ഒരു കോടി രൂപയും പ്രശസ്തിപത്രവുമടങ്ങുന്നതാണ് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ സന്നിഹിതാനായി

തുടർന്നുള്ള സമ്മേളനത്തെയും ശ്രീ

വി ഐ പി ഹെലികോപ്ടർ ഇടപാടു അഗസ്റ്റ കേസിൽ അറസ്റ്റിലായ ക്രിസ്ത്യൻ മൈക്കിളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ഒരു ദിവസത്തേക്കു കൂടി ദീർഘിപ്പിച്ചു

ബി ഐ ഫയൽ ചെയ്ത കേസിൽ പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറാണ് കസ്റ്റഡി കാലാവധി ദീർഘിപ്പിച്ചു നൽകിയത് ദുബായിൽ നിന്നും ഇന്ത്യയ്ക്കു കൈമാറിയ മൈക്കിളിനെ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തത്

ബി ഐ യും എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്ന കേസിൽ ആരോപണവിധേയരായ മൂന്നു പേരിലൊരാളാണ് ക്രിസ്ത്യൻ മൈക്കിൾ ഗ്വയ്ഡോ ഹസ്ച്ക് കാർലോ ജെറോസ എന്നിവരാണ് മറ്റ് രണ്ടുപേർ

മധ്യഹിരൺ മേഖലയിലെ ഗ്രാമീണ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുകയായിരുന്നു തീവ്രവാദികളെയാണ് വ്യോമാക്രമണം ലക്ഷ്യം വച്ചതെന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അമേരിക്കൻ പട്ടാള കമാൻഡ് വൃക്തമാക്കി ഡോണൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം അൽ ഷബാബിനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ യു എസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്

അക്രമ ക്യാമ്പുകൾക്കായി നികുതി ശേഖരിച്ചിരുന്ന അൽ ഷബാബ് ചെക് പോയിന്റുകൾ ശനിയാഴ്ച നടത്തിയ നാല് വ്യോമാക്രമണങ്ങളിൽ അമേരിക്ക തകർത്തിരുന്നു

ആനന്ദ് വിഹാറിൽ നിന്ന് ഉത്തംനഗറിലേക്ക് വരികയായിരുന്ന അപകടത്തിൽപെട്ടത്

ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണ്

ഇന്ത്യയ്ക്ക് എതിരായ ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചരൃത്തിൽ ഇനി നദീജലം പങ്കുവെക്കാനാകില്ലെന്നും ശ്രീ

പഗ്വാരയിലെ ദേശീയപാതയിൽ പുതുതായി നിർമിച്ച ഫ്ളൈഓവറിന്റെ നിർമാണം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം